അസമിൽ ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ സമ്പൂർണ്ണ കരട് പ്രസിദ്ധീകരിച്ചു

കേരളത്തിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ വർദ്ധന ഓറഞ്ച് അലർട്ട് ഇന്ന് ഉണ്ടായേക്കും

ലോക ബാഡ്മിന്റൺ ചാമ്പൃൻഷിപ്പിന് ഇന്ന് ചൈനയിൽ തുടക്കം

അസമിൽ ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ സമ്പൂർണ്ണ കരട് രൂപം പ്രസിദ്ധീകരിച്ചു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

അസമിന് ഇന്ന് ചരിത്ര ദിവസമാണെന്ന് ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ സൈലേഷ് ഗുവാഹത്തിയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പട്ടികയിൽ ഉൾപ്പെടാത്തവരെ രാജ്യത്ത് നിന്നും കയറ്റി അയക്കില്ലെന്നും ശ്രീ

ഇന്ന് പ്രസിദ്ധീകരിച്ച പൌരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടാത്തവർക്ക് ഇനിയും അവസരം നൽകുമെന്നും അദ്ദേഹം വ്യക്ത്മാക്കി രജിസ്റ്ററിൽ ഉൾപ്പെടാത്തവരുട്ട് പേരും അതിന്റെ കാരണവും ലഭ്യമാക്കുമെന്ന് സംസ്ഥാന് ദേശീയ പൌരത്വ രജിസ്റ്റർ കോ ഓർഡിനേറ്റർ പ്രദീപ് ഹജേല പറഞ്ഞു

അസമിൽ ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും കരട് പ്രസിദ്ധീകരിച്ചതിനുശേഷം ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രജിസ്റ്ററിൽ ഉൾപ്പെടാത്തവർക്ക് വിശദീകരണം നൽകിയാൽ ഇനിയും അവസരമുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി അവസാന പട്ടികയിൽ പേരില്ലാത്തവർക്ക് ഏത് സമയവും വിദേശ ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും ഇതിൽ ആശങ്ക പ്പെടേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൌരത്വ രജിസ്റ്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുപ്രീം കോടതി നിരീക്ഷിക്കുമെന്നും വളർ സുതാര്യമായാണ് കാര്യങ്ങൾ ചെയ്തതെന്നും ശ്രീ

പൌരത്വ രജിസ്റ്ററിന്റെ അന്തിമ രൂപം യാതൊരു ചായ്വുമില്ലാതെ സുതാര്യമായി തയ്യാറാക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി

ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിഷയത്തിൽ മറുപടി അറിയിക്കുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു പറഞ്ഞു സഭാ അധ്യക്ഷന്റെ മറുപടിയിൽ തൃപ്തരാകാത്ത തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഉച്ചവരെ പിരിയുകയാണുണ്ടായത്

ഒറ്റവിള കൃഷിയേക്കാൾ പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ഉൾപ്പെടെ വൈവിദ്ധ്യമാർന്ന വിളകൾ സംയുക്തമായി കൃഷിചെയ്യുന്ന രീതി അവലംബിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ചെ്ന്നൈയിലെ എം

സ്വാമിനാഥൻ ഫൌണ്ടേഷനിൽ കൃഷി പോഷക സമ്പന്നമാക്കുന്ന തിനുള്ള മാർഗ്ഗങ്ങൾ എന്ന വിഷയ്ത്തിൽ നടന്ന ദേശീയ സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ

പയർവർഗ്ഗകൃഷി പ്രോൽസാഫിപ്പിക്കുന്നതിലൂടെ പോഷകമൂല്യമുള്ള ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മണ്ണിന്റെ പോഷക സമ്പുഷ്ടി വീണ്ടെടുക്കാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ജെ പി രാജ്യസഭ എം

റാനേ അദ്ദേഹത്തിന്റെ മകനും എം

എ യുമായ നിതീഷ് റാനേ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്കുശേഷമാണ് ശ്രീ ഫട്നാവിസ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കതെതിരെ ആക്രമണം നടത്തിയതുൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ പിൻവലിക്കില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി മുംബൈയിലെ സഹ്യാദ്രി ഗസറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറാത്ത സമൂഹം സമാധാനം കാത്തുസൂക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പട്നയുൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പട്നയിലെ നളന്ദ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഉൾപ്പെടെ വെള്ളം കയറി

രാജ്യം നേരിടുന്ന സുരക്ഷാ ഭീഷണികളും തയ്യാറെടുപ്പുകളും യോഗം അവലോകനം ചെയ്യും മൂന്ന് സേനകളിലേയും പ്രതിരോധ മന്ത്രാലയത്തിലേയും ഉന്നതർ പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ സംയുക്ത പ്രശ്നങ്ങൾ ചർച്ചയാകും വരും വർഷത്തേക്കുള്ള ഏദ്ധതി ആസൂത്രണങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും

കേസിൽ മൂന്ന് പാകിസ്ഥാനികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്ധ്യപ്രദേശുകാരൻ സൻജീവ് ആണ് മലേഷ്യൻ റോയൽ പോലീസിന്റെ സഹായത്തോടെ ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ടതെന്ന് വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജ് ട്വീറ്റ് ചെയ്തു സൻജീവിന്റെ മോചനത്തിനായി പ്രവർത്തിച്ച മലേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ മൃദുൽ കുമാറും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അഭിനന്ദനമർഹിക്കുന്നതായി ശ്രീമതി സുഷമ സ്വരാജ് അഭിപ്രായപ്പെട്ടു

മഹാരാഷ്ട്ര മക്ച്ചിമാർ ആക്ഷൻ കമ്മിറ്റിയിൽ പ്രസിഡന്റായി നിരവധി കാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇദ്ദേഹം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് വേൾഡ് ഫിഷ് ഫോറം പീപ്പിളിൽ ഏഷ്യയെ ഇദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട്

എസ് ഇ

മൈക്കിലൂടെയും നേരിട്ടുമാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുക

ദേശീയ ദുരന്തപ്രതികരണ സേനയുടെ ഒരു സംഘത്തെ ആലുവയിൽ വിന്യസിച്ചിട്ടുണ്ട് കര നാവിക വ്യോമസേനകളുടെയും തീരസേനയുടെയും സഹായം സംസ്ഥാന ഗവൺമെന്റ് തേടി

ഇന്ത്യൻ താരങ്ങളായ പി

സിന്ധു മൂന്നാം സീഡും സൈന പത്താം സീഡുമാണ് പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് എച്ച്

പ്രണോയി സമീർ വർമ്മ എന്നിവരും ഇസ്റ് കളത്തിലിറങ്ങും പുരുഷ വനിത ഡബിൾസ് വിഭാഗത്തിലും ഇന്ത്യ മത്സരിക്കും

ഇന്നലെ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ റാങ്ക് പട്ടികയിൽ മുന്നിലുള്ള അമേരിക്കയോട് സമനിലയിലെത്തി നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ഇറ്റലിയെ നേരിടും നാളത്തെ മത്സര ജേതാക്കൾ വ്യാഴാഴ്ച നടക്കുന്ന കാർട്ടർ ഫൈനലിൽ ഐർലന്റുമായി ഏറ്റുമുട്ടും

സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ജാഗ്രതയിലാണ് വൃഷ്ടി പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു

എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലെ മുതിർന്ന നയതന്ത്ര വിദഗ്ദ്ധൻ ബ്രയാൻ ഹൂക്ക് പ്രസ്താവിച്ചതാണ് ഇക്കാര്യം ജപ്പാൻ ട്രാസ്ട്രേലിയ സൌത്ത് കൊറിയ തുടങ്ങിയ സമാന്തര ചിന്താഗതിയുള്ള രാഷ്ട്രങ്ങളുമായും അമേരിക്ക സഹകരിക്കുന്നതായും അദ്ദേഹം വൃക്തമാക്കി

അടുത്ത വർഷത്തെ ബ്രക്സിറ്റ് ഉച്ചകോടിയ്ക്ക് മുന്നോടിയായി ബീജിംഗുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം ബ്രിട്ടീഷ് വിദേശ കാര്യമന്ത്രിയുടെ ആദ്യ അന്താരാഷ്ട്ര പര്യടനമാണിത് ചൈനാ സന്ദർശനത്തെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പര്യടനത്തിന് മുന്നോടിയായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെറീമി ഹണ്ട് വ്യക്തമാക്കി